കോവിഡിനെതിരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി

രാജ്യത്ത് കോവിഡ് കേസുകൾ പ്പ്ർബിച്ചുവരുന്നതിൽ ആശങ്ക അറിയിച്ച് കേന്ദ്ര ആരോഗ്യമൃന്തി ്യൂഡോ ഹർഷവർദ്ധൻ വാക്സിൻ ക്ഷാമം ഇല്ലെന്നു് ം ്കേന്ദ്രമന്ത്രി

പശ്ചിമബംഗാളിൽ നാലാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ മുഖ്യമന്ത്രി മമതാ ബാനർജിയ്ക്കും ബി

കോവിഡ് മഹാമാരിക്ക് എതിരായ പോരാട്ടം ശക്തമാക്കാൻ ജനകീയ വാക്സിനേഷൻ യജ്ഞത്തിനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പ്രധാനമന്ത്രി ഈ നിർദേശം മുന്നോട്ടു വച്ചത്

ഡൽഹിയിൽ ഇന്ന് നടന്ന ചടങ്ങിലാണ് പൂസ്തകം പുറത്തിറക്കിയത് ഒഡീഷാസംസ്കാരം കൂടുതലായി ജനങ്ങളിൽ എത്തിക്കാൻ പുസ്തകത്തിന്റെ ഹിന്ദിപതിപ്പിലൂടെ സാധൃമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഒഡീഷ സംസ്കാരം പ്രതിപാദ്യമാകുന്ന ഒഡീഷ ഇതിഹാസിന്റെ ഇംഗ്ലീഷ് ഒഡിയ പതിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്

വർദ്ധിച്ചുവരുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്

മഹാരാഷ്ട്രയ്ക്ക് ഇതുവരെ ഒരു കോടി ആറുലക്ഷം ഡോസ് വാക്സിനും രാജ്സ്ഥാന് ഒരു കോടി നാലുലക്ഷം ഡോസ് വാക്സിനും നൽകിയെന്നും കേന്ദ്രമന്ത്രി ടിറ്ററിൽ കുറിച്ചു

കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അർഹരായ പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്

ജെ പി നേതാവ് സുവേന്ദു അധികാരിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി

പ്രകോപനപരമായി പ്രസംഗിച്ചെന്ന സി

എല്ലിന്റെ പരാതിയിലാണ് നടപടി

വെർച്ചൽ ഉച്ചകോടിയിൽ ഇരുനേതാക്കളും തമ്മിൽ ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ച് നടക്കും

സംഘത്തെ ലഫ് ജനറൽ പി

ചൈനീസ് പ്രതിനിധി സംഘത്തെ നയിക്കുക മേജർ ജനറൽ ലിയൂ ലിൻ ആണ് കഴിഞ്ഞ വർഷത്തെ രക്തരൂക്ഷിതമായ വേനൽക്കാലത്തിനുശേഷം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇടപെടൽ ഫലം കണ്ടതായാണ് സൂചന

നാല് സൈനികർക്കു പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് പ്രദേശത്തു ഇന്നലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു

പ്രതിദിന പരിശോധനകൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മുഖാവരണം ധരിക്കാത്തവർക്കും പൊതുസ്ഥലങ്ങളിൽസാമൂഹിക അകലം പ്രിലിക്കാത്തവർക്കുമെതിരെ നടപടികൾ കർശനമാക്കും കൃവീദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരുടെ കാര്യത്തിൽ നേരത്തേയുള്ള മാനദണ്ഡ്ങ്ങൾ നിലനിൽക്കുന്നതായി ചീഫ് സെക്രട്ടറി ഡോ

അടുത്ത ദിവസങ്ങളിൽ താനുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിക്കണമെന്ന് അദ്ദേഹം സമൂഹ മാധൃമങ്ങളിലൂടെ അറിയിച്ചു

മുംബൈ ചെന്നൈ ബംഗ്ളൂരൂ അഹമ്മദാബാദ് ന്യൂഡൽഹി കൊൽക്കത്ത എന്നീ ആറ് വേദികളിലായാണ് ഈ സീസണിലെ ഐപിഎൽ മത്സരങ്ങൾ നടക്കുന്നത്

മുഹമ്മദ് അസ്ഹറുദ്ദീൻ വിഷ്ണു വിനോദ് സച്ചിൻ ബോബി കെ

ആസിഫ് ബേസിൽ തമ്പി സദ്ദീപ് വാര്യർ തുടങ്ങിയവർ വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങും കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് സ്റ്റേഡിയങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ കാണികളെ പ്രവേശിപ്പിക്കാതെയാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്

നാളെ പാനൂരിൽ പ്രതിഷേധ സംഗമം നടത്തും

മറ്റന്നാൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദർശനത്തിനെത്തും

ദിവസവും വെർച്ചൽ ക്ട്യൂട് വഴി ബുക്ക് ചെയ്തെത്തുന്ന പതിനായിരം പേർക്കാണ് ദർശ്ന് ആനുമതി

എസ് സി പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദൃഘട്ടം നാളെ